വോട്ടർപട്ടിക സംശുദ്ധമാക്കൽ നടപടി നാളെ ആരംഭിക്കുമെന്ന് മുഖ്യ തെര ഞ്ഞെടുപ്പ് ഓഫീസർ പാലാ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇന്ന് പത്രിക നൽകും യു ഡി എഫും എൻ ഡി എയും രണ്ടു ദിവസത്തിനകം സ്ഥാനാർത്ഥി കളെ പ്രഖ്യാപിക്കും കർണാടക കോൺഗ്രസ് നേതാവ് ഡി

ശിവകുമാറിനെ കള്ളപ്പണം വെളുപ്പി ക്കൽ കേസിൽ എൻഫോഴ്സ്മെൻറ് ഡയറക്ട്രേറ്റ് ചോദ്യം ചെയ്തു നെഹ്രു ട്രോഫി ജലോത്സവം ഇന്ന് ആലപ്പുഴയിൽ പ്രഥമ ചാമ്പ്യൻസ് ബോട്ട്

സംസ്ഥാനത്ത് പി വി സി ഫ്ളക്സ് നിരോധിച്ചു ഇതു സംബന്ധിച്ച് ഉത്തരവ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പുറത്തിറക്കി ഗവൺമെന്റ് പരിപാടികൾ സ്വകാര്യ പരിപാടികൾ മതപരമായ ചടങ്ങുകൾ സിനിമ തെരഞ്ഞെടുപ്പ് പ്രചാരണം മറ്റു പരസ്യങ്ങൾ ഉൾപ്പെടെ യാതൊരു പ്രചാരണത്തിനും പി വി സി ഫ്ളക്സ് ഉപ യോഗിക്കാനോ അച്ചടിക്കാനോ പാടില്ലെന്ന് ഉത്തരവിൽ വ്യക്തമാക്കി പകരം പരി സ്ഥിതി സൌഹൃദവും പുനഃചംക്രമണം ചെയ്യാൻ സാധിക്കുന്നതുമായ വസ്തുക്കൾ ഉപയോഗിക്കണം തുണി പേപ്പർ പോളി എത്തലീൻ തുടങ്ങി പുനഃചംക്രമണം സാധ്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് അച്ചടിക്കുന്ന ബാനറുകളോ പരസ്യബോർഡു കളോ മാത്രമേ പരസ്യപ്രചാരണങ്ങൾക്ക് ഉപയോഗിക്കാവൂ പ്ലാസ്റ്റിക് കോട്ടിങ് ഉള്ള ക്ലോത്തും ഉപയോഗിക്കാൻ പാടില്ലെന്ന് ഉത്തരവിൽ പറയുന്നു ് ് ് ് ് ് ് സംസ്ഥാനത്ത് വോട്ടർപട്ടിക സംശുദ്ധമാക്കൽ നടപടി നാളെ ആരംഭി ക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടീക്കാറാം മീണ അറിയിച്ചു

ഈ പ്രക്രിയയിലൂടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും മരിച്ചവരുടെ പേര് ഒഴിവാക്കാനും മാറിപ്പോയവരുടെ പേര് മാറ്റാനും അവസരമു ണ്ട് എൻ വി എസ് പി പോർട്ടൽ വോട്ടർ ഹെൽപ്പ്ലൈൻ ആപ്പ് അക്ഷയകേന്ദ്രം താലൂക്ക് ഓഫീസുകൾ എന്നിവ മുഖേന പട്ടികയിൽ പേരുണ്ടോയെന്ന് വോട്ടർമാർ ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു പട്ടികയിലെ വിവരങ്ങൾ തിരുത്താനും അവസരം ലഭിക്കും

മികച്ച രീതിയിൽ കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പ് നടത്തിപ്പിന് കേരളം ഒറീസ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം ലഭിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു അസമിൽ ദേശീയ പൌരത്യ രജിസ്റ്ററിന്റെ അന്തിമ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും രാവിലെ പത്തിന് ഓൺലൈനിൽ പട്ടിക ലഭ്യമാകും

സംസ്ഥാന തലസ്ഥാനം ഉൾപ്പെടെ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അന്തിമ പട്ടികയിൽ പേരില്ലാത്തവർക്ക് ആവശ്യമായ സുരക്ഷ ഉറപ്പ് വരുത്തിയതായി ഗവൺമെന്റ് വ്യക്തമാക്കി പാലാ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിലെ യുഡി എഫ് സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിക്കുമെന്ന് കേരളാ കോൺഗ്രസ് എമ്മിലെ ജോസ് കെ മാണി വിഭാഗം അറിയിച്ചു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ തോമസ് ചാഴികാടൻ അധ്യക്ഷനായി ഏഴംഗ സമിതിയെ നിയമി ച്ചതായും പാലായിൽ ചേർന്ന നേതൃയോഗത്തിനു ശേഷം ജോസ് കെ മാണി വിഭാഗം വക്താവ് പറഞ്ഞു അതേസമയം വിജയ സാധ്യതയുള്ള സ്ഥാനാർ ത്ഥിക്ക് ചിഹ്നം അനുവദിക്കുമെന്ന് പി ജെ ജോസഫ് അറിയിച്ചു കേരളാ കോൺഗ്രസ് എമ്മിൽ പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി നിർണയ ത്തിനായി ഇന്ന് കോട്ടയത്തു ചേരാനിരുന്ന യുഡിഎഫ് യോഗം അനിശ്ചിത്വത്തിലായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ ഇന്ന് പത്രിക നൽകും എൻ ഡി എയിൽ ബിജെപി മൽസരിക്കാൻ തീരുമാനമായിട്ടുണ്ട് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച ചർച്ച നടന്നു വരുന്നു

ഇന്നലെ വൈകിട്ട് ആറരയ്ക്കാരംഭിച്ച ചോദ്യം ചെയ്യൽ അർദ്ധരാത്രിയോടെയാണ് അവസാനിച്ചത് ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യ ലിന് ഹാജരാകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടി ട്ടുണ്ട് അന്വേഷണവുമായി പൂർണമായും സഹകരിക്കുമെന്നും നിയമം അനുസരി ക്കുന്ന പൌരൻ എന്ന നിലയ്ക്ക് നിയമത്തെ മാനിക്കുമെന്നും ചോദ്യം ചെയ്യലിനു ശേഷം ശിവകുമാർ പറഞ്ഞു കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ചോദ്യം ചെയ്യാൻ എന്തിനാണ് തന്നെ വിളിച്ചുവരുത്തിയതെന്ന് അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം പ്രതികാരം തീർക്കുന്നതിനുവേണ്ടി പ്രതിപക്ഷനേതാക്കളെ കേസിൽ കുടുക്കാൻ ബി ജെ പി അന്വേഷണ ഏജൻസികളെ ദുരുപ്പയോഗം ചെയ്യുകയാ ണെന്നും കർണാടകയിലെ കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കുന്നതിന് സമയ പരിധി ഇന്ന് അവസാനിക്കും

തീയതി ദീർഘിപ്പിച്ചതായി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഉത്തരവ് വ്യാജമാണെന്നും നികുതി ബോർഡ് വ്യക്തമാക്കി പ്രളയം നാശം വിതച്ച മറ്റു സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ അനുവദിച്ച പാക്കേജ് കേരളത്തിന് നിഷേധിക്കുന്നത് നീതികേടാണെന്ന് കോൺഗ്രസ് നേതാവും വയനാട് എം പിയുമായ രാഹുൽഗാന്ധി അഭിപ്രായപ്പെട്ടു ദുരിതത്തിൽ നിന്ന് കര കയറിയിട്ടില്ലാത്ത കേരളം ദുരിതാശാസപാക്കേജിനായി കാത്തിരിക്കുകയാണെന്ന് അദ്ദേഹം ടിറ്ററിൽ പറഞ്ഞു ഗുരുവായൂർ ക്ഷേത്ര ദർശനം അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ട്വീറ്റിന് നൽകിയ മറുപടിയിൽ കേര ളത്തിലെ പ്രളയബാധിത പ്രദേശങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിക്കാത്തതിനെ വിമർശി ച്ചായിരുന്നു രാഹുലിന്റെ ടചീറ്റ് പ്രധാനമന്ത്രിയുടെ ഗുരുവായൂർ സന്ദർശനത്തിന് പിന്നാലെ കടുത്ത പ്രളയവും കേരളത്തിലെത്തിയെന്നും ജീവഹാനിക്കും നാശന ഷ്ടങ്ങൾക്കും അത് കാരണമായെന്നും ആ സമയത്ത് പ്രധാനമന്ത്രി കേരളം സന്ദർശി ച്ചിരുന്നെങ്കിൽ നന്നായിരുന്നുവെന്നും രാഹുൽ അഭിപ്രായപ്പെട്ടു

ഗവൺമെന്റിന്റെ കെയർ ഹോം പദ്ധതി പ്രകാരം പറവൂരിലെ ഗവൺമെന്റ് ജീവനക്കാരുടെ സഹകരണ ബാങ്ക് വട ക്കേകര ചിറ്റാറ്റുകര പഞ്ചായത്തുകളിൽ നിർമ്മിച്ച അഞ്ച് വീടുകളുടെ താക്കോൽദാനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി

കേരള കാർഷിക സർവ്വകലാശാലയും കൃഷി വിജ്ഞാന കേന്ദ്രവും പാലക്കാട് മലമ്പുഴയിൽ സംഘടപ്പിച്ച ജലശക്തി അഭിയാൻ കിസാൻ മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

പാലക്കാട് തത്തമംഗലത്ത് സപ്പെകോ സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

സംസ്ഥാനത്തെ വള്ളംകളികളെ കോർത്തിണക്കി സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരങ്ങളുടെ ഉദ്ഘാടനവും ഇതോടപ്പ് നടക്കും പ്രഥമ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും

ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ തെണ്ടുൽക്കർ മുഖ്യാതിഥിയാവും

ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങ ളെല്ലാം ഉച്ചകഴിഞ്ഞാണ് മികച്ചസമയം കുറിച്ച് ആദ്യമെത്തുന്ന നാലു ചുണ്ടൻവള്ളങ്ങളാണ് നെഹ്റു ട്രോഫിയിൽ മുത്തമിടാൻ മത്സരിക്കുക

ചാമ്പ്യൻഷിപ്പിൽ കേരളം ചാമ്പ്യന്മാരായി

ടീമിന്റെ രണ്ടാം ഏകദിന മത്സരം ഇന്ന് കാര്യവട്ടം സ്പോർടസ് ഹബിൽ രാവിലെ ഒൻപതിന് മത്സരം തുടങ്ങും

ചന്ദ്രനിൽ ഇറങ്ങുന്നതിന് മുന്നോടിയായി ഭ്രമണപഥം താഴ്ത്തുന്നതിന്റെ നാലാം ഘട്ടം ഇന്നലെ വൈകിട്ട് ഐ എസ് ആർ ഒ വിജയകര മായി പൂർത്തിയാക്കി അടുത്ത ഭ്രമണപഥ മാറ്റം നാളെയാണ് കർദ്ദിനാൾ മാർ ജോർജ്ജ് ആലഞ്ചേരി എറണാകുളം അങ്കമാലി അതി രൂപതയുടെ ഭരണചുമതല ഒഴിഞ്ഞു അതിരൂപതയുടെ പുതിയ ആർച്ച് ബിഷ പ്പായി മാണ്ഡ്യ ബിഷപ്പ് മാർ ആന്റണി കരിയിലിനെ നിയമിച്ചു സിറോ മലബാർ സഭയുടെ സിനഡിന്റെ സമാപന വേളയിലാണ് തീരുമാനം പ്രഖ്യാപിച്ചത്

ആർച്ചുബിഷപ്പുമായ ജസ്റ്റിൻ വെൽബിക്ക് വൈകിട്ട് കോട്ടയത്ത് സ്വീകരണം നൽകും രാവിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുന്ന ആർച്ച് ബിഷപ്പിനെ സി എസ് ഐ സഭാധ്യക്ഷന്മാർ ചേർന്ന് സ്വീകരിക്കും

സംസ്കാരം ഇന്ന് കൊച്ചി മട്ടാഞ്ചേരി ജൂത സെമിത്തേരി യിൽ

മണ്ണിടിച്ചിലിനെ തുടർന്ന് സമാന്തര പാത പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ ഏഴ് ട്രെയിനുകൾ ഇന്ന് റദ്ദാക്കി തിരുവനന്തപുരം നിസാമുദ്ദീൻ എക്സ്പ്രസ് കൊച്ചുവേളി ചാണ്ഢിഗഢ് സമ്പർക്കക്രാന്തി ദൈവാര എക്സ്പ്രസ് ഓഖ എറണാകുളം എക്സ്പ്രസ് മംഗളൂരു സെൻട്രലിൽ നിന്ന് മഡ്ഗാവിലേക്കും തിരിച്ചുമുള്ള എക്സ്പ്രസ് പാസഞ്ചർ ട്രെയിനുകൾ എന്നിവയാണ് റദ്ദാക്കിയത്

മാസത്തിനകം സ്ഥലം വാങ്ങി വീട് നിർമിച്ചു നൽകുമെന്ന് പി വി അൻവർ എംഎൽഎ അറിയിച്ചു കവളപ്പാറയിൽ സർവകക്ഷി അനുശോചനയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ആസൂത്രണ സാമ്പത്തിക കാര്യ വകുപ്പ് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡുകൾ ന്ന്നാക്കുക

പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടു ക്കി മലപ്പുറം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊല്ലം ആലപ്പുഴ എറണാകുളം ഇടുക്കി കണ്ണൂർ കാസർകോട് ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ടായിരിക്കും

നഗരസഭയായി ഇന്ന് പ്രഖ്യാ പിക്കും കട്ടപ്പനയിൽ രാവിലെ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എൻ

പുതിയ ആധാർ കാർഡ് എടു ക്കുന്നതിനും നിലവിലെ കാർഡുകളിൽ തിരുത്തലുകൾ വരുത്തുന്നതിനും ഈ കേന്ദ്രങ്ങളിൽ സൌകര്യം ലഭ്യമാകും